രാജ്യത്ത് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ നടപടി സഹായകരമാകുമെന്ന് കേന്ദ്ര ധനമന്ത്രി

കള്ളപ്പണം വെളുപ്പിക്കൽ കേസൂകളിൽ റോബർട്ട് വാദ്രയെയും കാർത്തി ചിദംബരത്തെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ട്രേറ്റ് വീ ും ചോദ്യാ ചെയ്തു

കേരളത്തിൽ ആലപ്പാട്ടെ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പഠിക്കാൻ എം

മാരും കളക്ടറും അടങ്ങുന്ന സമിതിയെ നിയോഗിച്ചു

മേഖലയിലെ തേയില ഉൾപ്പെടെയുള്ള കാർഷിക ഉല്പ്പന്നങ്ങൾ കമ്പോളങ്ങളിലേക്ക് എത്തിക്കുന്നതിനും പുതിയ പാത വഴിയൊരുക്കും ്മേഖലയിലെ വിനോദസഞ്ചാരത്തിനും പാത വൻ കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കുമെന്നാണ് റിപ്പോർട്ട് മേഖലയിലെ സാമൂഹ്യ സാമ്പത്തിക പുരോഗതി ഉറപ്പാക്കുന്നതിനും കൂടുതൽ തൊഴിൽ അവസരങ്ങൾ ഒരുക്കുന്നതിനും പാത സഹായകരമാകുമെന്ന് മന്ത്രാലയം വാർത്താകുറിപ്പിൽ അറിയിച്ചു

രാജ്യത്തെ പന്ത്ര ് കോടിയോളം വരുന്ന കർഷകർക്ക് പ്രയോജനം ലഭിക്കുന്നതാണ് പദ്ധതി കഴിഞ്ഞവർഷം ഡിസംബർ ഒന്ന് മുതൽ മുൻകാല പ്രാബല്യത്തോടെയാണ് പദ്ധതി നട്ടപ്പാക്കുന്നത്

ഗുണ്ടഭോക്താക്കളുടെ ബാങ്ക് അക്കൌ ് വിശദാംശങ്ങളും ഓൺലൈൻ പോർട്ടൽ വഴി ല്ഭ്യമാക്കുന്ന മുറയ്ക്ക് തുക അക്കൌ ിൽ ലഭിക്കുമെന്ന് ശ്രീ രാധാമോഹ്നർ സിംഗ് അറിയിച്ചു

സമ്പദ്ഘടനയെ കൂടുതൽ ശക്തിപ്പെടുത്താൻ നടപടി സഹായകരമാകുമെന്ന് ധനമന്ത്രി ട്വീറ്റ് ചെയ്തു വിശദാംശങ്ങളുമായി ഉദയൻ കിളിയന്നൂർ

പുതുക്കിയ നിരക്ക് ഉടൻ പ്രാബല്യത്തിൽ വരുമെന്ന് റിസർവ് ബാങ്ക് ഗവർണർ അറിയിച്ചു റിവേഴ്സ് റിപ്പോ നിരക്കിൽ മാറ്റം വരുത്തിയിട്ടില്ല

സമ്പദ് വൃവസ്ഥയിലേക്ക് കൂടുതൽ പണം ലഭ്യമാകുന്നതോടെ ജിഡിപിയിലും വളർച്ചയു ാകും ഫെബ്രുവരി ഒന്ന് വരെയുള്ള കാലയളവിൽ റാബി വിളകളുടെ വിതയിൽ നാല് ശതമാനം കുറ്റ്വ് രേഖപ്പെടുത്തിയെങ്കിലും അടുത്ത സീസണോടെ കുറവ് പരിഹരിക്കാനാവുമെന്നും യോഗം വിലയിരുത്തി ആർ ബി ഐ അദ്ധ്യക്ഷൻ ശക്തികാന്താദാസയെ നിയമിച്ചതിനുശേഷം പുറത്തുവരുന്ന ആദൃ ദൈമാസ ധനനയമാണിത്

അടിസ്ഥാന വായ്പാ നിരക്കിൽ കുറവ് വന്നത് സമ്പദ് വ്യവസ്ഥയിൽ കൂടുതൽ പണ ലഭൃത ഉറപ്പാക്കുകയും സമ്പദ്ഘടനയെ ശക്തിപ്പെടുത്താനും സഹായകരമാകുമെന്ന് ധനമന്ത്രി പറഞ്ഞു ചെറുകിട വ്യവസായികൾ ഭവന വാഹന വായ്പ ഗുണഭോക്താക്കൾ തുടങ്ങിയവർക്ക് മെച്ചപ്പെട്ട അവസരം ഒരുക്കാൻ നടപടിക്ക് കഴിയുമെന്ന് ധനമന്ത്രി ചു ിക്കാട്ടി ന്യൂസ് ഡെസ്ക് ആകാശവാണി

നിൽ അനധികൃതമായി വസ്തുവകകൾ വാങ്ങിയതുമായി ബന്ധപ്പെട്ടാണ് കേസ്

കള്ളപ്പണം വെളിപ്പിക്കലിനെതിരായ നിയമം അനുസരിച്ച് ഇദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് അന്വേഷണ ഏജൻസി റിക്കോർഡ് ചെയ്തു കഴിഞ്ഞ ആഴ്ച മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഡൽഹി കോടതിയെ സമീപിച്ച വാദ്രയോട് അന്വേഷണവുമായി സഹകരിക്കാനും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ മുന്നിൽ ഹാജരാകാനും നിർദ്ദേശം നൽകിയിരുന്നു

ചിദംബരത്തിന്റെ മകൻ കാർത്തി ചിദംബരം എൻഫോഴ്സ്മെന്റ് ഡ്രയറക്ട്രേറ്റിനു മുന്നിൽ ഹാജരായി

ചിദംബരം ധനമന്ത്രിയായിരുന്ന കാലയളവിൽ കചത മീഡിയയിൽ വിദേശ നിക്ഷേപത്തിന് ഫോറിൻ ഇൻവെസ്റ്മെന്റ് പ്രൊമോഷൻ ബോർഡ് അനുമതി നൽകിയത് സംബന്ധിച്ച് ഇതിനകം നിരവധി തവണ കാർത്തി ചിദംബരത്തിനെ അന്വേഷണ ഏജൻസി ചോദ്യം ചെയ്തിരുന്നു എൻഫോഴ്സ്മെന്റിനെ കൂടാതെ സി ബി ഐ

ബി ഐ കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ കാർത്തി ചിദംബരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു വിദേശ നിക്ഷേപം സ്വീകരിക്കുന്നതിന് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ബോർഡിന്റെ അനുമതി സംഘടിപ്പിച്ച് നൽകുന്നതിനു വേ ി കാർത്തി ചിദംബരം പണം കൈപ്പറ്റി എന്നു ത്തിയതിനെ തുടർന്നായിരുന്നു അറസ്റ്റ്

കൊല്ലപ്പെട്ട പത്ത് നക്സലേറ്റുകളുടെയും മൃതദേഹം കടെ ടുത്തായി ബിജാപ്പൂർ പോലീസ് സൂപ്ര ് മോഹിത് ഗാർഗ് അറിയിച്ചു

കേസിന്റെ വിചാരണ ആറ് മാസത്തിനകം പൂർത്തിയാക്കാനും ഡൽഹിയിലെ സാകേത് പോക്സോ കോടതിക്ക് ചീഫ് ജസ്റ്റീസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ ബഞ്ച് നിർദ്ദേശം നൽകി

അഭയകേന്ദ്രങ്ങളിലെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ബീഹാർ ഗവൺമെന്റിനേയും പരമോന്നത നീതിപീഠം രൂക്ഷമായി വിമർശിച്ചു

ജയരാജൻ അറിയിച്ചു സീ വാഷിംഗ് ഒരു മാസത്തേക്ക് നിർത്തിവയ്ക്കാൻ തീരുമാനിച്ചതായും മന്ത്രി തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു ഇക്കാര്യം ഐ

അംഗീകരിച്ചിട്ടു ്

എം എൽ

ആർ ഇ

ആലപ്പാട്ടെ പുലിമുട്ട് നിർമ്മാണം ് വേഗത്തിലാക്കാൻ തീരുമാനിച്ചതായും ശ്രീ

അതേസമയം ആലപ്പാട് ജനകീയസമിതിയുടെ സമരം നാളെ നൂറാം ദിനത്തിലേക്ക് കടക്കും ജനങ്ങളുടെ ആവശ്യങ്ങളോടുള്ള ഗവൺമെന്റിന്റെ നിലപാടിൽ പ്രതിഷേധിച്ച് സമരം സംസ്ഥാന തലത്തിൽ വ്യാപിപ്പിക്കാൻ സമര സമിതി തീരുമാനിച്ചു മഴക്കാലത്ത് മണൽ ഖനനം നിരോധിക്കാമെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന സമരസമിതി തള്ളി

ദേവസ്വം ബ്ലോർഡ് എടുക്കാത്ത തീരുമാനം കോടതിയിൽ അഭിഭാഷകൻ അറിയിച്ചതിൽ ്രവ്വൺമെന്റിന്റെ ഇടപെടലുടെ ന്നും ശ്രീ

യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് നിലപാട് തന്നെയാണ് സുപ്രീംകോടതിയിൽ അറിയിച്ചതെന്നും മറിച്ചുള്ള ആരോപണങ്ങൾ തെറ്റാണെന്നും കമ്മീഷണർ പറഞ്ഞു